കൂട്ടികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും

ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കൂന്നുതെന്ന് കേന്ദ്രമന്ത്രി സോം പ്രകാശ്

തുടർന്ന് ചൈനീസ് പുതുവർഷ ആഘോഷ പരിപാടികൾ റദ്ദാക്കി

കൂടിക്കാഴ്ചയ്ക്കിടെ കൂട്ടികൾ പ്രധാനമന്ത്രിയുമായി ആശയങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു കുട്ടികളുടെ ധീരതയും സഹനശക്തിയും പുത്തൻ ആശയങ്ങളോടുള്ള ത്വരയും എല്ലാവർക്കും പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളെയും അവരുടെ ഉന്നമനത്തിനായി വേറിട്ട സംഭാവന നൽകുന്ന സ്ഥാപനങ്ങളേയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പ്രധാൻമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്ക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നവീന ആശയങ്ങൾ സാമൂഹ്യ സേവനം അക്കാദമികം കായികം ധീരത കലാ സാംസ്ക്കാരികം എന്നീ മേഖലകളിലാണ് ബാൽ ശക്തി പുരസ്കാർ നിൽകി വരുന്നത് മെഡലും ഒരു ലക്ഷം രൂപയും പ്രശംസാപത്രവും ഫല്ലങ്ക്പൂർ അടങ്ങുന്നതാണ് പുരസ്ക്കാരം

പുതുതായി രൂപവൽക്കരിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ നടത്തുന്ന സന്ദർശനങ്ങളും പൊതുജന സമ്പർക്ക പരിപാടികളും ഇതിനുള്ള തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ജമ്മു കശ്മീർ ലഡാക് എന്നിവിടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പൊതുജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

ജമ്മു കശ്മീരിലെ ബ്ലോക്ക് വികസന കൌൺസിലുകളിലേക്ക് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പും അതിലെ സജീവ ജനപങ്കാളിത്തവും ചരിത്ര സംഭവങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു

ന്യൂഡൽഹിയിൽ പ്രകൃതിവാതക മേഖലയിലെ പുതിയ അവസരങ്ങൾ സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്തി

ഗുണമേന്മയുള്ള പ്രവൃത്തികൾ എന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും എന്നാൽ അഴിമതി വച്ച് പൊറുപ്പിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ദേശീയപാത അതോറിറ്റി എൻ

ഐ യുടെ ഇന്നലെ ആരംഭിച്ച രണ്ടു ദിവസത്തെ അവലോകന യോഗത്തിലെ ആദ്യ ദിന സമ്മേളനത്തിൽ അദ്ധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ശ്രീ

റോഡ് നിർമ്മാണത്തിൽ വിവിധ മന്ത്രാലയങ്ങളുടെ് പ്രശ്നങ്ങൾ അപ്പപ്പോൾ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും പ്രശ്ന്ങ്ങൾ ഉടനടി പരിഹരിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്പിറഞ്ഞു്

പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് ബിജെപി ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സ് ത്രികോണ മൽസരമാണ് ഡൽഹിയിൽ ഈ മാസം എട്ടിന് വോട്ടെടുപ്പ് നടക്കും

ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ രാജ്പഥിൽ നടക്കുന്ന പ്രധാന ആഘോഷപരിപാടിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദ്യം സ്വീകരിക്കും ബ്രസീൽ പ്രസിഡന്റ് ബൊൽസൊനാരോ മുഖ്യാതിഥിയാകും

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

ഭേദഗതിയെ അനുകൂലിച്ച് ഇന്നലെ ആഗ്രയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിയമത്തെ എതിർക്കുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ലെന്നും അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നൽകിയ വാഗ്ദാനം പാലിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മുംബൈയിൽ ഇന്നലെ വൈകിട്ട് നൂട്ടുന്ന പ്പാർട്ടി പ്തീനറി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭ്യ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളാൻ രാജ്യത്തിനാകില്ലെന്ന് അദ്ദേഹം പ്പുറ്ഞ്ഞു

താക്കറേ കൂട്ടിച്ചേർത്തും ് അഭയാർത്ഥി പ്രശ്നത്തിൽ അമേരിക്ക ബ്രിട്ടൺ തുടങ്ങിയ രാജ്യങ്ങളുടെ കർക്കശ നിലപാടാണ് ഇന്ത്യയും പിന്തുടരേണ്ടതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു

സ്ഥാപനങ്ങളുടെ ക്ഷമതാ ശാക്തീകരണം എന്ന ആശയത്തിലൂന്നിയുള്ള പ്രത്യേക സമ്മേളനവും ഇതോടൊപ്പം നടക്കും അഫ്ഗാനിസ്ഥാനിലെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മിഷൻ ധാരണാപത്രം ഒപ്പുവയ്ക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ മേഖലയിലെ വിദഗ്ദ്ധർ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സമ്മേളനം വേദിയാകും

ടി

ബസ്റയിൽ നിന്ന് ഹസിറയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ

നാളെ ചൈനീസ് പുതുവർഷ ആഘോഷങ്ങൾ നടക്കാനിരിക്കെ മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്

വൻ ജനപങ്കാളിത്തമുള്ള ആഘോഷ പരിപാടികൾ റദ്ദാക്കാൻ ഹോങ്കോങ്ങും തീരുമാനിച്ചു ഒക്ട്രിസ് ്ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വുഹാൻ പോലുള്ള നഗരങ്ങളിൽ പ്രവ്വേശ്രന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്

വൈറസ് ബാധിച്ചു നഴ്സിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി

അസീർ നാഷണൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവരുടെ നില മെച്ചപ്പെട്ടുവരുന്നതായും അദ്ദേഹം പറഞ്ഞു കൊറോണ വൈറസ് ഭീഷണിയെത്തുടർന്ന് നിരീക്ഷണത്തിലുള്ള ഇന്ത്യൻ നഴ്സുമാരുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ആശയവിനിമയം നടത്തിയതായും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി നഴ്സുമാരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ മന്ത്രി എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തിരുവനന്തപുരം സ്വദേശിയായ പ്രവീണിന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങളാണ് എത്തിച്ചത്

കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി രഞ്ജിത്ത്കുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ നാട്ടിൽ എത്തിക്കും

ക്ലോമൺവെൽത്ത് ഗെയിംസിലെ വെങ്കല മെഡൽ ജേതാവ് മുഹമ്മ്ദ് ഹുസ്സ്ലാമൂട്ടീനും സെമി ഉറപ്പിച്ചിട്ടുണ്ട്

നാളെ നടക്കുന്ന ഫൈനലിൽ ഇടം നേടാനുള്ള ശ്രീമൂത്തിലാണ് മൂവരും

ഇന്ത്യൻ അമ്പെയ്ത്ത് ഫെഡറേഷൻ ലോക അമ്പെയ്ത്ത് സംഘടനയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും നല്ല ഭരണ നിർവ്വഹണം കാഴ്ചവെയ്ക്കണമെന്നും സംഘടന പ്രസ്താവനയിൽ അറിയിച്ചു